കേരളത്തെ സമ്പൂർണ സാന്ത്വന ചിക്ടിത്സാ സൌഹൃദസം സ്ഥാനമായി പ്രഖ്യാപിച്ചു കൊച്ചുവേളി മംഗലാപുരം അന്ത്യോദയാ എക്സ്പ്രസിന് ആലപ്പുഴയിലും കാസർക്കോട്ടും സ്റ്റോപ്പ് അനുവദിച്ചു

സംസ്ഥാനത്തെ ദേശീയപാതാ വികസന നിർമാണ പ്രവൃത്തി കൾ അടുത്തമാസം തുടങ്ങുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയി ച്ചു

ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായ വടകര മൂരാട് പയ്യോളി പാലങ്ങൾ ദേശീയപാതാ വികസനത്തിന് മുൻപ് തന്നെ നിർമിക്കാൻ ദേശീയപാതാ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കോഴിക്കോട് കുന്ദമംഗലത്ത് മിനി സിവിൽസ്റ്റേഷന്റെ രണ്ടാം ഘട്ട വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് വെള്ളിമാടുകുന്ന് നഗരവികസന പദ്ധതി ധനകാര്യ വകുപ്പ് പരിഗണിച്ചുവരികയാണ് പദ്ധതിക്ക് ഗവ അനുകൂലമാ ണെന്ന് അദ്ദേഹം പറഞ്ഞു വയ നാട് ചുരത്തിന് ബദൽപാത നിർമിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് ജി സുധാകരൻ അറിയിച്ചു

ഇത് ഗവൺമെന്റിന് ലഭ്യമായിട്ടില്ല ചിപ്പിലി തോട്ടിൽ മണ്ണിടിഞ്ഞ് തകർന്ന ചുരം റോഡിന്റെ നിർമാണ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി

സാന്ത്രനചികിത്സ വേണ്ടിവരുന്ന ഓരോ വ്യക്തി യിലേക്കും അത് എത്തിക്കാൻ എല്ലാ പ്രാഥമിക്യാരോഗ്യകേന്ദ്രങ്ങ ളിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് തിരു വനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഖ്യാപ്പനി യോഗത്തിൽ മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു കമ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രവർത്തനങ്ങളുടെ സംസ്ഥാന തല പ്രവർത്തനോദ്ഘാടനവും മുന്ത്രീ നിർവഹിച്ചു

ചടങ്ങിൽ പ്രൊഫ പി ജെ കുര്യൻ അധ്യക്ഷനായിരിക്കും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിത്വം തെളി യിക്കുന്നത് വരെ അമ്മ അടക്കം ഒരു സംഘടനയിലും സജീവമായി പ്രവർത്തിക്കില്ലെന്ന് നടൻ ദിലീപ് അറിയിച്ചു ദിലീപിനെ താരസം ഘടനയിൽ തിരിച്ചെടുത്തതിനെതിരെ മന്ത്രിമാരും വനിതാകമ്മീഷനും അടക്കം രംഗത്തുവന്നതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മ നേതൃത്വ ത്തിന് കത്ത് നൽകിയത് അതിനിടെ കൊച്ചിയിൽ എഐവൈഎഫ് പ്രവർത്തകർ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ കോലം കത്തിച്ചു ദിലീപിനെ അമ്മ യിൽ തിരിച്ചെടുത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കോലം കത്തിക്കൽ ദിലീപിനെ താരസംഘടനയിൽ തിരിച്ചെടുത്ത വിഷയം ചർച്ച ചെയ്യാൻ അമ്മ യുടെ പ്രത്യേകയോഗം വിളിക്കണമെന്ന് വിമൻ ഇൻ സിനിമ കലക്ടീവിലെ മൂന്ന് പ്രവർത്തകർ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു രേവതി പാർവ്വതി തിരുവോത്ത് പത്മപ്രിയ എന്നിവർ ഈ ആവശ്യമുന്നയിച്ച് കത്ത് നൽകിയിട്ടു ണ്ട്

കെവിന്റെ ശരീരത്തിൽ മദ്യ ത്തിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് തെന്മല ചാലിയേക്കര ആറ്റിലെ വെളളമാണ് കെവിന്റെ ശരീരത്തിൽ കണ്ടെത്തിയതെന്നും പരിശോധനാഫലത്തിൽ പറയുന്നു ഇന്ന് വിദഗ്ധൃസംഘം തെന്മ ലയിലെത്തി സംഭവസ്ഥലത്ത് വിശദപരിശോധനി നടത്തും കൊച്ചുവേളി മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസിന് ആല പ്പുഴയിലും കാസർകോട്ടും സ്റ്റോപ്പ് അനുപ്പദിച്ചു

എംപിമാരായ വി മുരളീധരനും കെ സിവേണുഗ്ഗോപാൽ പി കരുണാകരൻ എന്നി വരും നൽകിയ നിവേദനത്തെ തുടർന്നാ്ണ് സ്റ്റോപ്പ് അനുവദിച്ചത്

മൂല്യനിർണയത്തിൽ തെറ്റുവരുത്തിയ അധ്യാപ കർക്കെതിരെ നടുപടിയെടുക്കാൻ റീജ്യണൽ ഓഫീസുകൾക്ക് നിർദേശ് നൽകിയിട്ടുണ്ടെന്നും സിബിഎസ്ഇ കേന്ദ്രങ്ങൾ വെളി പ്പെടുത്തി യുജിസി യെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രനടപടിക്കെതിരെ ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്ന് എസ്എഫ്ഐ അറിയിച്ചു ജില്ലാആസ്ഥാനങ്ങളിൽ കേന്ദ്രഗവ ഓഫീസുകളിലേക്കും പ്രതിഷേധമാർച്ച് നടത്തും

മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് കൊല്ലം കോർപറേഷനും കുടുംബശ്രീയുടെ മിത്രഗ്രൂപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ നിന്ന് ജപ്പാനും കൊളംബിയയും പ്രീകാർട്ടറിലെത്തി ഫെയർ പ്ലേയുടെ മികവിൽ സെനഗലിനെ മറികടന്നാണ് ജപ്പാൻ രണ്ടാം റൌണ്ടിലെത്തിയത് ഗ്രൂപ്പ് ജി യിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഇംഗ്ലണ്ടിനെ തോൽപിച്ച് ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി

വനിതകളുടെ ട്രിപ്പിൾ ജംപിൽ കേരളത്തിന്റെ എൻ വി ഷീന സ്വർണം നേടിയെങ്കിലും ഏഷ്യൻ ഗ്െയ്യിംസ് യോഗ്യതാ മാർക്ക് കടന്നില്ല

ആലപ്പുഴ ചമ്പക്കുളം മൂലം വളളംകളിയിൽ നടുഭാഗം ബോട്ട് ക്സബ്ബിന്റെ നടുഭാഗം പ്രുണ്ടൻ ജേതാവായി യുബിസി കൈനകരി യുടെ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനവും കേരള പൊലീ സ്ബോട്ട് ക്ലബ്ബിന്റെ മഹാദേവിക്കാട് കാട്ടിൽതെക്കേതിൽ മൂന്നാം സ്ഥാനവും നേടി

ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ രണ്ട് മത്സര പരമ്പര സ്വ ന്തമാക്കാനാണ് ഇന്ന് ക്രീസിൽ ഇറങ്ങുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന വേദിയായി കശുവണ്ടി വിപണന മേഖല മാറിയിരിക്കുകയാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആരോപിച്ചു കശുവണ്ടി വ്യവസായ രംഗത്ത് സ്ഥാപിത താൽപര്യക്കാരുടെ ലോബി വളരെ വലുതാണെന്നും അതിനെ നേരിടാൻ ഗവ ശ്രമം നടത്തിവരികയാണെന്നും അവർ കൊല്ലത്ത് പറഞ്ഞു കശുവണ്ടി മേഖലയെക്കുറിച്ച് ഡോ പ്രേംലെറ്റ് തയ്യാറാക്കിയ കാശിന് എട്ട് എന്ന ഡോക്യുമെൻററിയുടെ പ്രദർശനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും മറ്റന്നാളും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും നാളെ രാവിലെ കണ്ണൂർ കാസർക്കോട് ജില്ലകളിലെ എട്ട് പുഴകളെ ബന്ധിപ്പിച്ചു ളള മലബാർ റിവർ ക്രൂയിസ് പദ്ധതി പറശ്ശിനിക്കടവിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് പൊലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും കോഴിക്കോട് പയ്യോളിയിലെ ഇരിങ്ങൽ കരക്കൌശല പരിശീലന അക്കാദമി ഇന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കരകൌശലമേഖലയിലെ പൈതൃക സംരക്ഷണത്തിന് ആവശ്യമായ പരിശീലനമാണ് അക്കാദമിയിൽ ഒരുക്കുന്നത്

ചരിത്ര സ്മാരകമാറ്റി മാറ്റിയ പയ്യന്നൂർ പഴയ പൊലീസ് സ്റ്റേ ഷൻ കെട്ടിടം ഇന്ന് മന്ത്രി രാമപ്പന്ദ്രൻ കടന്നപ്പളളി നാടിന് സമർപ്പി ക്കും പുരാവസ്തു വകൂപ്പ് കെട്ടിടത്തിന്റെ ശാസ്ത്രീയ സംരക്ഷ ണപ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇഎംഎസ് സ്മാരക് പഠന ഗവേഷണ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഇഎംഎസിന്റെ ലോകം ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് മലപ്പുറം വണ്ടൂരിൽ ആർട്ടിക്കും രാവിലെ പൊളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദാ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും

സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിനായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കലക്ടർക്ക് സംസ്ഥാന ഗവ നൽകുന്ന അവാർഡിന് മലപ്പുറം ജില്ലാകലക്ടർ അമിത് മീണ അർഹനായി

എറണാകുളത്തെ വിശപ്പ് രഹിതനഗരം പദ്ധതി ജൂലൈ ഒന്ന് മുതൽ വിപുലീകരിക്കും